ലങ്ങളിൽ നാമനിർദ്ദേശപത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും തദ്ദേശ സ്ഥാപനങ്ങൾ സംസ്ഥാനത്ത് ഗാന്ധി ജയന്തി ദിനം മുതൽ ഹരിത നിയമങ്ങൾ കർശനമായി നടപ്പാക്കും ഇടുക്കി തൃശൂർ മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്

സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ച് നിയമസഭാ മണ്ഡ ലങ്ങളിലും നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും കോൺഗ്രസ് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പത്രികാസമർപ്പണം ഇന്ന് നടക്കും

നാളെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും ഒക്ടോബർ മൂന്ന് വരെ പത്രിക പിൻവലിക്കാം

ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അരൂരിൽ മൂന്നു മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ പ്രചാരണം തുടങ്ങി എൽ ഡി എഫ് സ്ഥാനാർത്ഥി മനു സി പുളിക്കലിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാനി മോൾ ഉസ്മാനും എൻ ഡി എ സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവും ഇന്ന് നാമനിർദ്ദേശപത്രിക സമർപ്പിക്കും

ഹരിത കേരളം മിഷൻ സംഘടിപ്പിച്ചുവരുന്ന ബോധവൽക്കരണ പരിശീലന പരിപാടിയുടെ തുടർച്ചയാണ് നടപടി

ഒക്ടോബർ രണ്ടിന് തദ്ദേശ സ്ഥാപ നങ്ങൾ സംഘടിപ്പിക്കുന്ന യോഗങ്ങളിൽ മാലിന്യം കത്തിക്കുകയോ വലി ച്ചെറിയുകയോ വെള്ളത്തിലൊഴുക്കുകയോ ചെയ്താൽ കർശന നടപടി യുണ്ടാകുമെന്ന് പ്രഖ്യാപിക്കും തുടർന്ന് എല്ലാവരും ചേർന്ന് മാലിന്യവി രുദ്ധ പ്രതിജ്ഞ എടുക്കുമെന്ന് ഹരിത കേരളം മിഷൻ എക്സിക്യൂട്ടീവ് വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ ടി

സീമ തിരുവനന്തപുരത്ത് അറി യിച്ചു

ഒക്ടോബർ ് എട്ടുവരെ തുടരുന്ന വാരാചര ണകാലത്ത് സംസ്ഥാന വ്യാപകമായി ശുചീകരണ ബോധവൽക്കരണ പരി പാടികളും സെമിനാറുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് മരടിലെ അനധികൃത ഫ്ളാറ്റുകളിൽ നിന്ന് സ്വയം ഒഴിയാമെന്ന് ഉടമകൾ സന്നദ്ധത അറിയിച്ചതോടെ ഒക്ടോബർ മൂന്നിനകം ഒഴിപ്പിക്കൽ നട പടികൾ പൂർത്തിയായേക്കും ജില്ലാ കലക്ടറുമായി ഇന്നലെ നടത്തിയ ചർച്ച യിലാണ് ഫ്ളാറ്റുടമകൾ വ്യാഴാഴ്ചയ്ക്കകം ഒഴിയാമെന്ന് അറിയിച്ചത് ഇതോടെ സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിലെ പ്രധാന തടസ്സം ഒഴിവായി

ഉടമകൾ സ്വയം ഒഴിഞ്ഞു പോകാൻ തയ്യാറായതോടെ വൈദ്യുതി കുടിവെള്ള കണക്ഷനുകൾ താൽക്കാലികമായി പുനഃസ്ഥാപിച്ചു ഫ്ളാറ്റ് ഒഴിയാൻ ആവശ്യമായ സാഹ ചര്യമൊരുക്കാനാണ് നടപടി ് പാലാരിവട്ടം മേൽപ്പാലം അഴിമതി കേസിൽ റിമാൻഡിൽ കഴിയുന്ന നാല് പ്രതികൾ സമർപ്പിച്ച ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും പൊതുമരാമത്ത് മുൻ സെക്രട്ടറി ടി ഒ സൂരജ് കരാർ കമ്പനി മാനേജിംഗ് ഡയറക്ടർ സുമിത് ഗോയൽ റോഡ്സ് ആന്റ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ മുൻ അസിസ്റ്റന്റ് ജനറൽ മാനേജർ എം ടി തങ്കച്ചൻ കിറ്റ്കോ ജോയിന്റ് ജനറൽ മാനേജർ ബെന്നിപോൾ എന്നിവർ സമർപ്പിച്ച ഹർജികളാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്

ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

ലക്ഷദ്വീപ് മേഖ ലയിലും മഴയുണ്ടാകും

എന്നാൽ ഇതുവരെ കാലവർഷം അവ സാനിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ ജനറൽ മൃത്യുഞ്ജയ് മഹാപത്ര പറഞ്ഞു

ഇന്നുകൂടി മധ്യപ്രദേശ് രാജസ്ഥാൻ തെലങ്കാന ബിഹാർ സംസ്ഥാ നങ്ങളിൽ അതീവശക്തമായ മഴ ഉണ്ടായേക്കുമെന്നാണ് കാലാവസ്ഥാ മുന്ന റിയിപ്പ്

ബിഹാറിൽ ഗംഗാനദി കരകവിഞ്ഞ് പറ്റ്നയടക്കം പല പ്രദേശങ്ങളും വെള്ള ത്തിനടിയിലായി

ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്ക കേസിലെ കോടതി വിധി നടപ്പാക്കുന്നില്ലെന്ന് ആരോപിച്ച് ഓർത്തഡോക്സ് സഭ നൽകിയ ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്

ക്കാൻ അനുവദിച്ച സമയപരിധി ഇന്ന് അവസാനിക്കും

ന്ന യെ സമീപിച്ച നെഹ്രുവിന്റെ നടപടി ഹിമാലയൻ മണ്ടത്തരമായിരുന്നുവെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടു തർക്കഭൂമി എന്ന നിലയിൽ ജമ്മു കശ്മീരിനെ ഐക്യരാഷ്ട്രസഭയിൽ നെഹ്രു അവതരിപ്പിച്ചു എന്നാൽ ഇന്ത്യൻ മണ്ണിലെ പാകിസ്ഥാന്റെ അധിനിവേശം എന്ന നിലയിൽ വിഷയം ഉന്നയിച്ചി രുന്നെങ്കിൽപാക് അധീന കശ്മീർ എന്ന മേഖല ഇപ്പോൾ ഉണ്ടാകില്ലായിരു ന്നുവെന്ന് അമിത്ഷാ ന്യൂഡൽഹിയിൽ പറഞ്ഞു

ഈ ഇന ത്തിൽ അമേരിക്കയാണ് സ്വർണ്ണം നേടിയത്

രണ്ടാം മത്സരം മഴയെതുടർന്ന് ഉപേക്ഷിച്ചിരുന്നു ആദ്യമത്സരം ജയിച്ച ഇന്ത്യ പരമ്പരയിൽ മുന്നിട്ടുനിൽക്കു കയാണ് അവസാന രണ്ട് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവരെ ഇന്ന് പ്രഖ്യാ പിച്ചേക്കും

ഇതിൽ പത്തും വനിതാവിഭാഗത്തിനാണ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ നന്ദന ആർ മൂന്നും ദിൽന എം

ചാമ്പ്യൻഷിപ്പ് ഇന്ന് സമാപിക്കും

പുരുഷ ടീം ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയെയും വനിതാ ടീം പഞ്ചാബി നെയുമാണ് തോൽപിച്ചത്

കണമെന്ന് മന്ത്രി എ

ചില പ്രത്യേക വൃക്തികൾക്കു മാത്രം അവകാശപ്പെട്ടതെന്ന് കരുതിയ പല അവാർഡുകളും താഴെക്കിട യിലെ കലാകാരന്മാർക്ക് നൽകാൻ കഴിഞ്ഞതായി അദ്ദേഹം കോഴിക്കോട് തൂണേരിയിൽ പറഞ്ഞു വെള്ളൂർ പി

കോഴിക്കോട്ട് ഇന്നലെ അന്തരിച്ച മുതിർന്ന വൈദികനും എഴു ത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനും ആയിരുന്ന ഫാദർ ജിയോ പയ്യപ്പള്ളിയുടെ സംസ്കാരം നാളെ വൈകിട്ട് മേരിക്കുന്ന് ഹോളി റെഡിമർ പള്ളി സെമിത്തേരിയിൽ നടക്കും നാളെ രാവിലെ മുതൽ ബ്രിജിറ്റൈൻ കോൺവെന്റ് ചാപ്പലിൽ ഭൌതികശരീരം പൊതുദർശനത്തിന് വയ്ക്കും

ബി സി അൽമായ കമ്മീഷൻ സെക്രട്ടറി ദൈവശാസ്ത്ര പണ്ഡിതൻ റേഡിയോ പ്രഭാഷകൻ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന അദ്ദേഹം കോഴി ക്കോട് ആകാശവാണി അഡൈസറി ബോർഡ് അംഗമായും പ്രവർത്തിച്ചി ട്ടുണ്ട് ഇസ്താമിക് സ്റ്റേറ്റിൽ ചേരാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയ കാസർക്കോട് ജില്ലക്കാരായ എട്ടുപേർ കൊല്ലപ്പെട്ടതായി ദേശീയ അന്വേ ഷണ ഏജൻസി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു

കുട്ടികളെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ സമഗ്രാന്വേഷണം നടത്തണ മെന്ന് ബിനോയ് വിശ്വം എം

പ്രധാനമന്ത്രിക്കയച്ച കത്തിൽ ആവശ്യ പ്പെട്ടു മറ്റന്നാൾ രാജ്യത്തെ സമ്പൂർണ്ണ വെളിയിട വിസർജ്ജന മുക്തമായി പ്രഖ്യാപിക്കുന്നതിനുമുമ്പ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ രാവിലെ ട്രെയിനിൽ യാത്ര ചെയ്ത് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണമെന്നും ബിനോയ് വിശ്വം അഭ്യർത്ഥിച്ചു

ത്തിലാക്കുമെന്ന് ദക്ഷിണ റെയിൽവെ അധികൃതർ അറിയിച്ചതായി എൻ

യാത്രാപ്രശ്നത്തിന് പരിഹാരം കാണണം എന്നാവശൃപ്പെട്ട് യുവജന സംഘടനകൾ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം ആറാം ദിവസത്തിലേക്ക് സമരം നടത്തുന്നു യുവജന സംഘടനാ നേതാക്കളിൽ രണ്ടുപേരെ കൂടി ഇന്നലെ അറസ്റ്റ് ചെയ്ത് നീക്കി സമരത്തിന് പിന്തുണ യർപ്പിച്ച് ഗുണ്ടൽപേട്ട് എം എൽ എ നിരഞ്ജൻ കുമാർ സമരപ്പന്തലിൽ എത്തി റോഡ് അടയ്ക്കുന്നതിനെതിരെ ജനവികാരം കർണാടക മുഖ്യമ ന്ത്രിയെ അറിയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു

അന്താരാഷ്ട്ര കാപ്പി ദിനത്തോടനുബന്ധിച്ച് വയനാട്ടിൽ നാളെ വൈകിട്ട് ആദ്യ കോഫി അസംബ്ലി നടക്കും ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സെമിനാറുകളിൽ നിന്നും ചർച്ചകളിൽ നിന്നും ഉണ്ടാ കുന്ന ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ലക്ഷ്യമിട്ടാണ് അസംബ്ലി ചേരു ന്നത്